ഒരു മാവോയിസ്റ്റ് മരിച്ചെന്ന് സ്ഥിരീകരി ക്കാത്ത റിപ്പോർട്ട് രാജ്യവ്യാപകമായി ഇന്ന് ജനൌഷധിദിനം ആഘോഷിക്കുന്നു പ്രധാ നമന്ത്രി നരേന്ദ്രമോദി സ്റ്റോർ ഉടമകളും ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിങിലൂടെ സംവദിക്കും ചർച്ച് ആക്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പോലിസ് തലപ്പത്ത് അഴിച്ചുപണി ഷെയ്ക്ക് ദെർവേഷ് സാഹിബ് ഉത്തരമേഖലാ എ

ജി

എഫ്

ഡി എഫ് സീറ്റ് വിഭജനം അന്തിമ ഘട്ടത്തി ലെത്തി കോൺഗ്രസും സി

ഐ എമ്മും പാകിസ്താന് ജയ് വിളിക്കുക യാണെന്ന് ബി ജെ

വയനാട്ടിൽ വൈത്തിരിയ്ക്ക് സമീപം ലക്കിടിയിൽ മാവോവാദികളും പോലിസ് തണ്ടർബോൾട്ടും ഇന്നലെ രാത്രി ഏറ്റുമുട്ടി വെടിവെപ്പിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് വേൽമുരുകൻ എന്ന മാവോ നേതാവ് മരിച്ചുവെന്നാണ് രഹസ്യാമ്പേഷണ വിഭാഗം നൽകിയ സൂചന എന്നാൽ പോലിസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഏറ്റുമുട്ടൽ പുലർച്ചെവരെ നീണ്ടുവെന്നാണ് വിവരം

റിസോർട്ടി ലെത്തിയ മാവോയിസ്റ്റ് സംഘം പണവും ഭക്ഷണവും ആവശ്യപ്പെട്ടവി വരം ജീവനക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു സ്ഥലത്തെ ത്തിയ തണ്ടർബോൾട്ട് പ്രദേശം വളഞ്ഞതോടെയാണ് വെടിവെപ്പുണ്ടാ യത് മാവോയിസ്റ്റ് സംഘത്തിൽപ്പെട്ടവർ കാട്ടിലേക്ക് കടന്നുവെന്ന വിവ രത്തെത്തുടർന്ന് തിരച്ചിൽ നടക്കുകയാണ്

ഇന്ന് രാജ്യവ്യാപകമായി ജനൌഷധി ദിനം ആഘോഷിക്കും രാജ്യത്തെ അയ്യായിരത്തോളം ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിങിലൂടെ സംവ ദിക്കും

കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ജനറിക് മരു ന്നുകളുടെ പ്രചാരം രണ്ട് ശതമാനത്തിൽനിന്ന് ഏഴ് ശതമാനമായി വർധി ച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു

സംസ്ഥാന നിയമപരിഷ്കരണ കമ്മിഷന്റെ ചർച്ച് ആക്ട് നടപ്പാ ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാ ക്കി കമ്മിഷൻ ബിൽ തയ്യാറാക്കിയത് ഗവൺമെന്റുമായി ആലോചിച്ച ല്ലെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് കത്തോലിക്കസഭ പ്രതിനിധികളോട് പറഞ്ഞു കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് ആർച്ച് ബിഷപ്പ് സൂസേപാക്യം താമരശേരി രൂപതാ ബിഷപ് മാർ റെമിജിയോസ് ഇഞ്ച നാനിയൽ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ത് ചർച്ച് ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തോലിക്ക് കോൺഗ്രസ് ഇന്ന് കോട്ടയം തിരുനക്കര മൈതാനിയിൽ പ്രതിഷേധ സമ്മേ ളനം വിളിച്ചിട്ടുണ്ട് ഉത്തരമേഖല എ

യായി ഷെയ്ക്ക് ദെർവേഷ് സാഹിബി നെയും ദക്ഷിണമേഖല എ

യായി മനോജ് എബ്രഹാമിനെയും നിയമിച്ചു ടോമിൻ ജെ തച്ചങ്കരിയായിരിക്കും കോസ്റ്റൽ പോലീസ് എ

കോഴിക്കോട് സിറ്റി പോലീസ് കമ്മിഷണറായി എ

കോഴിക്കോട്ട് കമ്മിഷണറായിരുന്ന സഞ്ജയ് കുമാർ ഗരുഡിനെ തിരുവനന്തപുരം കമ്മിഷണറായി മാറ്റിനിയമിച്ചു തിരു വനന്തപുരത്ത് കമ്മിഷണറായിരുന്ന എസ് സുരേന്ദ്രനാണ് കൊച്ചിയിലെ പുതിയ പോലീസ് കമ്മിഷ്ണർ ഈ മാസം ഒൻപതിന് സംസ്ഥാനത്തെ എല്ലാ കോടതികളിലും നട ത്തുന്ന ലോക് അദാലത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ ഗവർണർ പി

കോടതി വ്യവ ഹാരങ്ങൾക്കുപുറമേ വിവിധ മേഖലകളിലെ തർക്കങ്ങളും ലോക് അദാ ലത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു നീണ്ടകാലമായി തീർപ്പാകാതെ കിടക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ഉദ്ദേശി ച്ചാണ് ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നത് നോർക്ക റൂട്സിന്റെ ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഇന്ന് വ്വൈകീട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാ ടനം ചെയ്യും പ്രവാസി മലയാളികളിൽനിന്ന് കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് സെന്റർ തുറന്നത് നാളെ അന്താരാഷ്ട്ര വനിതാദിനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും

സി ഡി

പുരസ്കാര വിതരണവും ചടങ്ങിൽ നടക്കും സംസ്ഥാനത്ത് പകൽച്ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യ ത്തിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കരുതെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മിഷൻ നിർദ്ദേശിച്ചു ഷൂസും ടൈയും ഉൾപ്പെടെ യൂണിഫോം ധരിക്കുന്നത് കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കു മെന്ന് കമ്മിഷൻ ചെയർമാൻ പി

ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സി

എം

നാളെച്ചേരുന്ന ഇടതുമുന്നണി നേതൃയോഗത്തിൽ സീറ്റ് വിഭജനത്തിന് ഔപചാരികമായി അംഗീകാരം നൽകും

എമ്മും നാലിടത്ത് സി

ഐയും മത്സരിക്കാനാണ് ധാരണ ഘടകകക്ഷികളായ ഐ എൻ എൽ ജനാധിപത്യ കേരള കോൺഗ്രസ് എൻ സി പി ജനതാ ദൾ എസ് എന്നീ കക്ഷികൾ സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും നൽകാനാവി ല്ലെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് ഇന്നത്തെ സി

എം സെക്രട്ടേറി യറ്റ് സംസ്ഥാനസമിതി യോഗങ്ങൾ പാർട്ടി സ്ഥാനാർഥികളെ അന്തിമ മായി തീരുമാനിക്കും

ഡി എഫിലെ സീറ്റ് വിഭജനം പൂർത്തിയായതോടെ കോൺഗ്ര സിലെ സ്ഥാനാർഥി നിർണയം അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു ഈ ആഴ്ച അവസാനത്തോടെ സ്ഥാനാർഥി പട്ടിക ്ടഹൈക്കമാൻഡിന് സമർപ്പി ക്കാനാണ് ശ്രമം നടക്കുന്നത് പത്തനംതിട്ടയിലും എറണാകുളത്തും പ്രാദേശിക എതിർപ്പുണ്ടെങ്കിലും സിറ്റിങ് സീറ്റുകളിൽ അതത് എം

മാരെത്തന്നെ മത്സരിപ്പിക്കാനാണ് ധാരുണ എന്നാൽ ആലപ്പുഴയിൽ കെ

വടകര യിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല

ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ചാലക്കുടിയിൽ ബെന്നി ബെഹ നാനും തൃശൂരിൽ ടി

പ്രതാപനും മത്സരിച്ചേക്കുമെന്നാണ് സൂച ന പാലക്കാട്ട് വി

ശ്രീകണ്ഠൻ കാസർകോട്ട് സുബ്ബറായ് ഇടുക്കി യിൽ ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെ ടുത്തും ആലത്തൂർ കണ്ണൂർ മണ്ഡലങ്ങളിൽ യുവ നേതാക്കളുടെ പേരു കളും പരിഗണനയിലുണ്ട് ഉമ്മൻചാണ്ടി മത്സരിക്കുമോ എന്ന കാര്യ ത്തിലും ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാ റിയതിനെ ചോദ്യംചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും കേന്ദ്രഗവൺമെന്റ് മുമ്പ് നൽകിയ ഉറപ്പ് ലംഘിച്ചാണ് സ്വകാര്യവത്കരണമെന്നും ടെണ്ടർ ഉൾപ്പെടെ നടപ ടികളിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് ഗതാഗതവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ

ജ്യോതിലാലാണ് ഹർജി നൽകിയത്

എമ്മും പാക്കിസ്താന് ജയ് വിളിക്കുക യാണെന്ന് ബി ജെ

സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ജെ

യുടെ പരിവർത്തൻ യാത്രയ്ക്ക് റാന്നിയിൽ നൽകിയ സ്വീകരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ശോഭാസുരേന്ദ്രൻ നയിക്കുന്ന മധ്യമേഖലാ പരിവർത്തൻയാത്ര ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തും ആലത്തൂർ തരൂർ നെന്മാറ ചിറ്റൂർ മണ്ഡ ലങ്ങളിൽ ഇന്ന് യാത്രയ്ക്ക് സ്വീകരണം നൽകും

ജെ

സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേശ് നയിക്കുന്ന പരിവർത്തനയാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി ഇന്ന് രാവിലെ തളിപ്പറമ്പിൽനിന്ന് യാത്ര പുനരാരംഭിക്കും വൈകിട്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും നാളെ കോഴിക്കോട് ജില്ലയിലെ പരൃടനം തുടങ്ങും പഞ്ച്ഗുള ഇന്ത്യൻ ഗ്രാന്റ് പ്രീ അത്ലറ്റിക്സിൽ കേരള താരങ്ങളായ വി

വിസ്മയക്കും എം

ജാബിറിനും സ്വർണം

ചിത്ര വെള്ളി നേടി ലോക വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ കമ്മിഷന്റെ ആഘോഷ പരിപാടികൾ ഇന്ന് കൊച്ചിയിൽ മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിക്കും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പുര സ്കാരങ്ങൾ വിതരണം ചെയ്യും

വൈകിട്ട് മന്ത്രി എം

വൈദ്യുതി സംബന്ധമായ അപകടത്തിൽ ഒരു ജീവിയ്ക്കും ജീവൻ നഷ്ടമാകരു തെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

മന്ത്രിമാരായ വി

സുനിൽകുമാറും എം

മണിയും ജനപ്രതിനിധികളും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ഇടതു ഗവൺമെന്റിന്റെ നയങ്ങൾ കർഷക വിരുദ്ധമാണെന്ന് ആരോ പിച്ചും ബാങ്കുകളുടെ ജപ്തി നടപടികളിൽ പ്രതിഷേധിച്ചും ബി ജെ

മദ്യപാനവും നൈരാശ്യവുംകൊണ്ടാണ് കർഷകർ ആത്മഹത്യ ചെയ്തതെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അവഹേളനമാണെന്ന് പ്രതി ഷേധയോഗം വിലയിരുത്തി

കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽനിന്ന് അടുത്തമാസം രണ്ട് മുതൽ എയർഇന്ത്യയുടെ ഡൽഹി സർവീസ് ആരംഭിക്കും

തിരുവനന്തപുരം ലോക്മാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് ഇന്നു മുതൽ ഏപ്രിൽ ഒന്നുവരെ പൻവേലിലോ താനെയിലോ സർവീസ് അവ സാനിപ്പിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു